തോമസ് ഐസക് ശബരിമലയിൽ നാളെ മകരവിളക്ക്

ഏഷ്യൻകപ്പ് ഫുട്ബോൾ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ ബഹ്റിനെ നേരിടും സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങൾ എല്ലാ മെഡിക്കൽ കോളജുക ളിലും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇവിടങ്ങ ളിൽ ക്യാൻസർ ചികിത്സാ സൌകര്യവും ലഭ്യമാക്കും

ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെട്ടതിനെതുടർന്ന് കൂടുതൽപേർ എത്തിക്കൊണ്ടിരി ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കളമശ്ശേരിയിൽ എറണാകുളം മെഡിക്കൽ കോളജിന്റെ മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടസമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും അത്യാ ധുനിക കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും നിർവ്വഹിക്കുകയായിരുന്നു മുഖ്യ മന്ത്രി സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിലെ നിലവിലെ സൌക രൃങ്ങൾ മെച്ചപ്പെടുത്തും കേരളത്തിലെ ഹൃദ്രോഗികളുടെ എണ്ണം വർദ്ധിച്ചതായും ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ഇതിന് കാരണമെന്നും ഇതിനെതിരെ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്ക ണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹർത്താൽ പണിമുടക്ക് എന്നിവയിൽനിന്ന് ടൂറിസം മേഖലയെ ഒഴിവാക്കണമെന്ന് മന്ത്രി ഡോ

പ്രളയത്തിനുശേഷം സംസ്ഥാനത്തെ വിനോദ സഞ്ചാരമേഖല കനത്ത പ്രതിസന്ധിയിലാണ് തുടർച്ചയായ പണിമുടക്കുകൾ ഹർത്താൽ അതേ തുടർന്നുണ്ടായ അക്രമങ്ങൾ തുടങ്ങിയവ ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചുവെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പുറഞ്ഞു

ചില വിദേശരാജ്യങ്ങളടക്കം ഇന്തൃയിലെത്തുന്ന പൌരന്മാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് ടൂറിസത്തിന് തിരിച്ചടിയായെന്നും മന്ത്രി വൃക്തമാക്കി ശബരിമലയിൽ നാളെ മകരവിളക്ക് മകരജ്യോതി ദർശിക്കാൻ ശബ രിമലയുടെ പരിസരങ്ങളിൽ ഭക്തർ പർണ്ണശാലകൾ തീർത്ത് ശരണംവിളി കളുമായി കാത്തിരിക്കുകയാണ് ഇതരസംസ്ഥാനങ്ങളിൽനിന്നെത്തിയ തീർത്ഥാടകരാണ് എണ്ണത്തിൽ കൂടുതൽ

എന്നാൽ ഹിൽടോപ്പിൽ മണ്ണിടിച്ചിൽ സാധ്യത പരിഗണിച്ച് ഭക്തരുടെ പ്രവേ ശനം നിരോധിച്ചു മകരവിളക്കിന് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണവു മായി പുറപ്പെട്ട ഘോഷയാത്ര സംഘം രണ്ടാംദിവസത്തെ യാത്ര ഇന്ന് പുലർച്ചെ അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽനിന്നും ആരംഭിച്ചു നാളെ വൈകീട്ട് യാത്രാസംഘം സന്നിധാനത്ത് എത്തും തുടർന്ന് അയ്യപ്പവിഗ്ര ഹത്തിൽ തിരുവാഭരണം ചാർത്തി സന്ധ്യാദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിയും മകരവിളക്കിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവ സ്വംബോർഡ് പ്രസിഡന്റ് എ

ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ നിർദ്ദേശം പാലിച്ചിട്ടാണ് നടപടികൾ സ്വീകരി ക്കുന്നത് ഗവൺമെന്റും ദേവസ്വംബോർഡും ഒന്നിച്ചാലോചിച്ചാണ് പ്രവർത്തനം നടത്തുന്നതെന്നും പത്മകുമാർ പത്തനംതിട്ടയിൽ പറ ഞ്ഞു

തുടർന്ന് നടയടയ്ക്കും ശബരിമലയിലെ അക്രമങ്ങൾ തിരക്കും വരുമാനവും കുറയാൻ ഇട യാക്കിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

ഇത് വരുമാ നത്തെ കുറച്ചു

ഐ

ഉം ഗവൺമെന്റും വരുമാനം എടുക്കുക യാണെന്ന വ്യാജ പ്രചരണമാണ് നടത്തിയത് പ്രതിസന്ധി മറികടക്കു മെന്നും പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകുമെന്നും കടകംപള്ളി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ശബിമലയിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതി നിർദ്ദേശിച്ച പോരായ്മകളെല്ലാം പരിഹരിച്ചതായി ് ദേവസംകമ്മീഷണർ എൻ വാസു അറിയിച്ചു

മക രസംക്രമ പൂജയ്ക്ക് മുന്നോടിയായി ശുദ്ധിക്രിയകളും സന്നിധാനത്ത് ആരം ഭിച്ചു മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പവിളക്കും സദ്യയും ഇന്ന് നടക്കും എരുമേലി പേട്ട തുള്ളിയെത്തുന്ന ഭക്തർ പമ്പയിലെത്തി ഉച്ചയ്ക്ക് പമ്പ മണപ്പുറത്ത് സദ്യ കഴിഞ്ഞാണ് വൈകീട്ട് ആറിന് പമ്പ വിളക്കിലും പങ്കെടുത്ത് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുക

ലോക്സഭ മുത്തലാഖ് ബിൽ പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ പാസാ ക്കാനാകാത്തിനെതുടർന്നാണ് ഇന്നലെ വീണ്ടും ഓർഡിനൻസ് പുറപ്പെട് ടുവിച്ചത് മുത്തലാഖിനെ ജാമ്യം ലഭിക്കാത്ത കുറ്റമായി പരിഗണിച്ചാണ് ഓർഡിനൻസെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽനിന്ന് ജാമ്യമെടുക്കാമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട രണ്ട് ഐ

ഐ

ഐ എ ് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് വൈകീട്ട് പോർട്ട് ബ്ലെയറിലെത്തും ദ്വീപിലെ സൈനിക കമാൻഡുകളുടെ വികസനവും പരിഷ്കരണവും മന്ത്രി വിലയിരുത്തും നാളെ ക്യാംപ് ബെല്ലിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിനും പ്രതിരോധമന്ത്രി സാക്ഷ്യം വഹിക്കും തുടർന്ന് സൈനികരുമായി മന്ത്രി ആശയവിനിമയം നടത്തും ദ്വീപിൽ സൈനികരുടെ കുടുംബങ്ങൾക്കുള്ള പുതിയ പാർപ്പിട പദ്ധതിയും പ്രതിരോധമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ഗുരുവിന്റെ ജന്മദിനാവാർഷികാഘോഷവേളയിൽ ന്യൂഡൽഹി യിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണയം പ്രകാശനം ചെയ്യും

രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഗുജറാത്ത് കാർട്ടർ ഫൈനൽ മത്സരം മറ്റന്നാൾ വയനാട്ടിലെ കൽപറ്റ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ആരം ഭിക്കും ഇരു ടീമുകളും ഇന്നലെ വയനാട്ടിലെത്തി സ്വന്തം നാട്ടിലെ കാണികളുടെ പിന്തുണ മുതൽകൂട്ടാകുമെന്നാണ് കേരള ടീമിന്റെ പ്രതീ ക്ഷ

കോട്ടത്തറയിൽ ഇന്ന് വൈകീട്ട് മന്ത്രി എ

ഗോത്രജീവിക പദ്ധതിയിൽ രൂപീകരിച്ച സ്വാശ്രയ സംഘങ്ങളുടെ സംസ്ഥാനതല പ്രവർത്തനോ ദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാകുന്നതിനെതിരെ ശക്ത മായ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് വൃക്തമാക്കി

ലഹരി മരുന്നു മാഫിയക്കെതിരെ നട പടി ശക്തമായി തുടരുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്

അന്താരാഷ്ട്രവിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചതിനെതുടർന്നാണ് ഇന്ധനവില വർദ്ധിച്ചത്

അകത്തേത്തറ ശബരിആശ്രമ ത്തിൽ മന്ത്രി എ

പ്രളയത്തിനു ശേഷം നടന്ന കലോത്സവത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയതിനാൽ ജേതാക്കൾക്ക് കപ്പ് നൽകിയിരുന്നില്ല

ഒറ്റപ്പാലം കണ്ണിയമ്പുറം എ യു പി സ്കൂളിലായിരുന്നു പരിപാടി

കാസർകോട് ചെങ്കലയിലെ ഇബ്രാഹിം മസൂദ് മുമ്മദാലി ആഷിക് എന്നി വരാണ് പിടിയിലായത് പ്രമുഖ ഗാന്ധിയനും പ്രഭാഷകനും ചിന്തകനുമായ കെ

റഹീം നിര്യാതനായി

കേരള സർവ്വോദയമ ണ്ഡലം മുൻ സംസ്ഥാന അധ്യക്ഷൻ കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഖബറ ടക്കം പിന്നീട് നടക്കും സ്വാതന്ത്രൃ സമരസേനാനി കണ്ണൂർ പരിയാരത്തെ പൊന്നാരൻ നാരാ യണൻ നിര്യാതനായി

ആദ്യകാല കമ്മ്യൂണിസ്റ്റ് കർഷ കസംഘം പ്രവർത്തകനായിരുന്നു അദ്ദേഹം

തൊടു പുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മുട്ടം പെരുമറ്റത്തായിരുന്നു അപകടം

ഈ തീർത്ഥാടനകാ ലത്ത് പമ്പയിലെ രണ്ടാമത്തെ മുങ്ങി മരണമാണ് ഇത് കണ്ണൂർ അഞ്ചരിക്കുണ്ടിയിൽ ഇന്നലെ രാതി ഓയിൽ മില്ലിന് തീപിടിച്ചു ചാമ്പാട് രാംസൺസ് മില്ലാണ് കത്തിനശിച്ചത്